ഹർജി ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ദേവസ്വംബോർഡ് പ്രസിഡന്റ് എ പദ്മകുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തും പ്രളയത്തിൽ പമ്പയിലുണ്ടായ നാശം കൂടുതൽ ആളുകൾക്കായി അടിസ്ഥാന സൌകരൃമൊരുക്കാനുള്ള പ്രയാസങ്ങൾ യുവതികൾ വന്നാൽ പ്രത്യേക സൌകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ കാരണങ്ങൾ നിരത്തിയാകും ഹർജി നൽകുക

ജെ